രാജ്യത്ത് നവരാത്രി ഉത്സവങ്ങൾക്കു തുടക്കമായി ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വി കെ ജയരാജ് പോറ്റി ശബരിമല മേൽശാന്തി എം എൻ രജികുമാർ മാളികപ്പുറം മേൽശാന്തി

രാജസ്ഥാൻ ബംഗളൂരുവിനെയും ചെന്നൈ ഡൽഹിയെയും നേരിടും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും നവരാത്രി ആശംസകൾ നേർന്നു ഭൂമിയിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും ആരോഗ്യവും സുരക്ഷയും ഐശ്ചര്യവും വരുന്നതിനായി പ്രാർത്ഥി ക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

കേരളത്തിൽ നവരാത്രി പൂജകൾക്ക് തുടക്കം കുറിച്ച് കന്യാകുമാരി പദ്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നുള്ളൂ വിഗ്രഹങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്തെത്തിച്ചു

കോവിഡ് നിയന്ത്രണങ്ങൾ എല്ലാം കൃത്യമായി സ്പാലിച്ചുകൊണ്ടാകും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക എന്ന് വിജയവാഡയിലെ ശ്രീ ദുർഗ മല്ലേശ്വര സ്വാമി ക്ഷേത്ര ഭാരവാഹീകൾ അറിയിച്ചു

ഇരുസംസ്ഥാന ങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി എല്ലാവിധ സഹായങ്ങളും കേന്ദ്രം നൽകുമെന്ന് ശ്രീ

വോയിസ് മഹാരാഷ്ട്രയിലും കർണാടകയിലും കനത്ത മഴയെ തുടർന്നുണ്ടായ സാഹചരൃങ്ങൾ നേരിടാൻ രണ്ടു സംസ്ഥാനങ്ങൾക്കും എല്ലാവിധ സഹായങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പുനൽകി മഴയും വെള്ളപ്പൊക്കവും മൂലം ഉണ്ടായ നാശനഷ്ടങ്ങൾ കുറിച്ച് പ്രധാനമന്ത്രി ഇരുസംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തി

മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറയുമായി വെള്ളപ്പൊക്കം നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി ടിറ്ററിൽ കുട്ടിച്ചു കർണാടകത്തിന്റെ വിവിധഭാഗങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങ്ങ്ള് ് കുറിച്ച് മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുമായി പ്രധാനമന്ത്രി ്വിലയിരുത്തൽ നടത്തി തന്റെ പ്രാർത്ഥനകൾ മുഴുവൻ ദ്രീരിത്തിൽ പെട്ട ജനങ്ങൾക്കു വേണ്ടി ആണെന്നും രക്ഷാപ്രവർത്തുനത്തിന് കേന്ദ്രത്തിന്റെ മുഴുവൻ പിന്തുണയും ഉണ്ടാകുമെന്നു് പ്ര്യാനമന്ത്രി വാഗ്ദാനം ചെയ്തു

രോഗമുക്തി നിരക്ക് കുറയ്ക്കാനും മരണനിരക്ക് നിയന്ത്രിക്കാനും കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ തന്ത്രപ്രധാനമായ നടപടികളുടെ ഫലമാണിതെന്ന് മന്ത്രാലയം അറിയിച്ചു

കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ വർധന രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണിത്

അമേരിക്ക മെക്സിക്കോ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ രോഗവ്യാപനം തുടരുകയാണ് ആകെ രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ്

തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് രാവിലെ തുറന്നപ്പോഴാണ് മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടന്നത് തൃശൂർ പൊയ്യ പൂപ്പത്തി വാരിക്കാട്ട് മഠത്തിലെയാണ് ് ജയരാജ് പോറ്റി

ദർശനത്തിനെത്തുന്നവർ ആചാരപ്രകാരമുള്ള സാധനങ്ങൾകൂടാതെ പരമാവധി കുറച്ചു സാധനങ്ങളേ കൊണ്ടുവരാവൂവെന്ന് കേരള പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അഭ്യർഥിച്ചു

സാമൂഹ്യ അകലം പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

യാത്രാ സമയത്ത് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മേരി സഹേലി എന്ന പുതിയ പദ്ധതി ആരംഭിച്ചതായും മന്ത്രാലയം അറിയിച്ചു

വടക്ക് കിഴക്കൻ മേഖല കൌൺസി ലിന്റെ ഫണ്ടിൽ നിന്നും മുപ്പത് ശതമാനമാണ് മേഖലയിലെ അവഗ്ണിക്കപ്പെട്ട പ്രദേശങ്ങളുടെ വികസനത്തിനായും പുതിയ പദ്ധതികൾക്കായും നീക്കിവയ്ക്കുന്നത് അരുണാചൽ പ്രദേശിലെ ചക്മ ഹജോങ് വിഭാഗത്തിലുള്ളവരുടെ പൌരത്വ അവകാശങ്ങൾ ക്കായുള്ള സമിതിയുടെ പ്രതിനിധികളുമായി സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്

കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ജഗൻ മോഹൻ റെഡ്ഢി കേന്ദ്ര സഹമന്ത്രി റിട്ട ജനറൽ വി

സിംഗ് ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി എന്നിവർ ചേർന്ന് ഇന്നലെ നടന്ന വിർച്ചൽ ചടങ്ങിലാണ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്

പരിക്കേറ്റ് ആശുപത്രികളിൽ കഴിയുന്നവർക്ക് എല്ലാ സഹായവും ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു

മേഖലയിൽ തീവ്രവാദ സാന്നിധൃമുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ തിരച്ചിലിപ്പിട്ടെയാണ് സംഘർഷം ഉണ്ടായത്

സംസ്ഥാനങ്ങൾക്ക് വികസനകാര്യങ്ങൾക്കാത്ത് പ്രത്യേകം തുക കണ്ടെത്താനുള്ള അവസരമാണിത്

ദുബായ് ഇന്റർ നാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം

ഒരു നേരത്തെ അന്നത്തിനായി പോലും ബുദ്ധിമുട്ടുന്ന ജനതയുടെ പ്രതിസന്ധിയും പോരാട്ടവും രാജ്യാന്തര ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ ദിനം ആചരിക്കുന്നത് ദാരിദ്ര്യം എന്നത് ലോകം നേരിടുന്ന ബഹുമുഖ പ്രതിസന്ധിയാണെന്ന് ഐക്യരാഷ്ട്രസഭ വികസനപദ്ധതിയായ യു എൻ ഡി പിയുടെ ഇന്ത്യൻ ഡെപ്യൂട്ടി റസിഡന്റ് നാദിയ റഷീദ് ആകാശവാണിയോട് പറഞ്ഞു